കോവിഡ് പരിശോധനിയ്ക്ക് ഐ സി എം

സംസ്ഥാനത്ത് ഹയർ സെക്കന്ററി പരീക്ഷകൾ പുനഃരാരംഭിച്ചു

എസ് എൽ സി പരീക്ഷ തുടരും

വിഷയത്തിൽ ഇന്നലെ സംസ്ഥാനത്തെ എം പി മാരുടേയും എം എൽ

കോവിഡ് സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ എം പിമാരേയും എം എൽ എ മാരേയും പങ്കെടുപ്പിച്ച് മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസ് ചർച്ച ഫലപ്രദമായിരുന്നില്ലെന്ന് കെ

സി

പിമാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പ്രത്യേക യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മലയാളികളെ തിരിച്ചെത്തിക്കുന്ന പാസിന്റെ മറ്റവിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റും തൊഴിലാളികളെ സംസ്ഥാനത്ത് ് എത്തിക്കുന്നതായി റിപ്പോർട്ടുണ്ട്

ബസ്സുകളിലും ബസ് സ്റ്റാന്റുകളിലും നിയന്ത്രണമില്ലാത്ത തിരക്കും ഓട്ടോറിക്ഷകളിൽ കൂടുതൽ പേർ സഞ്ചരിക്കുന്ന സാഹചര്യവും കണ്ടെത്തിയിട്ടുണ്ട് വിലക്ക് ലംഘിച്ച് ആളെ കയറ്റുന്ന വാഹന ഉടമകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയെടുക്കും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും തിരക്ക് ഒഴിവാക്കാൻ പൊലീസ് കർശനമായി ഇടപെടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് സംസ്ഥാനം സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ തുടർച്ചയായ നാലാം ദിവസവും വർദ്ധന രേഖപ്പെടുത്തി

സംസ്ഥാനത്ത് ഒറ്റ ദിവസം ഇത്രയുമധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമാണ്

വിലക്ക് ലംഘിക്കുകയും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകി

ജില്ലയിലെ ചെർപ്പുളശ്ശേരി പഞ്ചായത്തിനെയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെയും ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു

സംസ്ഥാനത്ത് ഇത്രയും പേർക്ക് രോഗം പിടിപെടുന്നത് ആദ്യമാണ്

ഇവരുടെ കോവിഡ് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല

തൃശൂർ തൃക്കൂർ മാവിൻചുവട് സ്വദേശി ലണ്ടനിൽ കൊവിഡ് ബാധിച്ച് മരിച്ചു

സി എം

പൊതു ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന വഴിയോര കച്ചവടക്കാർ സെക്യൂരിറ്റി ജീവനക്കാർ ചെക്പോയിന്റുകളിലെ പൊലീസുകാർ ബസ് ഡ്രൈവർമാർ ഫാർമസി ജീവനക്കാർ എന്നിവരെ ആദ്യം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് ഐ സി എം

ആരോഗ്യപ്രവർത്തകർ നാട്ടിൽ മടങ്ങിയെത്തുന്നവർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവർക്കു പുറമെയാണ് ഈ വിഭാഗങ്ങൾ

വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്നും പൊതു സ്ഥലങ്ങളിൽ തുപ്പുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം അറിയിച്ചു ഹോട്ടൽ വാടക വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തി രോഗനിരീക്ഷണത്തിനായി സമ്പർക്ക വിലക്കിൽ കഴിയുന്നവരിൽ നിസ്റ്റ് ഇന്റടാക്കിയ ഏഴ് ദിവസത്തെ ഹോട്ടൽ വാടക തിരിച്ചു നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

എന്നാൽ പിന്നീട് ഇത് ഏഴ് ദിവസമായി ്പുരീമിതപ്പെടുത്തിയിരുന്നു

നിലവാരം കുറഞ്ഞ അരി വിതരണം ചെയ്തെന്ന മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം കൊല്ലം ആശുപത്രി പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി ഇന്ന് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ അണുവിമുക്തമാക്കാൻ മൂന്നു ദിവസം അടച്ചിടുകയായിരുന്നു

ഇന്നലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും എസ് എസ് എൽ

എച്ച് എസ്

എസ് എൽ

ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എസ് എസ് എൽ സി ഫിസിക്സ് പരീക്ഷ നടക്കും കർശന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് പരീക്ഷകൾ നടത്തുക

സ്കൂളുകൾ തുറന്നു പ്രവർത്തീക്കാനുള്ള വിലക്ക് തുടരുന്നതായും ആഭ്യന്തരമന്ത്രാലയ്ക് അറിയിച്ചു കൊച്ചി വിമാനങ്ങൾ ദുബായ് ഡബ്ലിൻ അബുദാബി കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി വിമാന്നിങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തും

ഏഴ് വിമാനങ്ങൾ കൂടി ഇന്നെത്തും അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു

നേരത്തെ നിയന്ത്രണത്തോടെ ലേലം നടത്താൻ അനുമതി ലഭിച്ചെങ്കിലും ലേലം നടന്നില്ല ഇത് കർഷകരെയും ചെറുകിട വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കി

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

ഉത്ര കൊലപാതകം കൊല്ലം അഞ്ചലിൽ പാമ്പുകടിയേറ്റ് മരിച്ച ഉത്രയുടെ കുഞ്ഞിനെ ഉത്രയുടെ മാതാപിതാക്കൾക്ക് കൈമാറി അടൂരിലെ ബന്ധുവീട്ടിലാക്കിയിരുന്ന കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പൊലീസ് സാന്നിധൃത്തിൽ കൊണ്ടുവന്ന് ഉത്രയുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നു ഉത്രയെ കടിച്ചെവെന്നു കരുതുന്ന പാമ്പിനെ കുഴിച്ചിട്ടിടത്തു നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു